പട്ടിക ജാതി പട്ടിക വർഗ പീഡന നിരോധന നിയമത്തിലെ വ്യവ സ്ഥകൾ പുനസ്ഥാപിക്കുന്ന ഭേദഗ്തി ബിൽ വർഷകാല സമ്മേ ളനത്തിൽ തന്നെ പാസാക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിങ്ങ് ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നു

പാലക്കാട്ട് മൂന്ന് നില കെട്ടിടം തകർന്ന പശ്ചാത്തലത്തിൽ നഗര സഭയിലെ കാലപ്പഴക്കം ചെന്ന മുഴുവൻ കെട്ടിടങ്ങളും അടിയ ന്തിരമായി പരിശോധിക്കാൻ നിർദേശം കണ്ണൂർ കീഴാറ്റൂർ ബൈപാസ് നിർമ്മാണ പ്രശ്നത്തിൽ ഇന്ന് വയൽക്കിളികളുമായി കേന്ദ്രമന്ത്രി നിധിൻ ഗഡ്കരി കൂടിക്കാഴ്ച്ച നടത്തും

മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെയാണ് ബിൽ പാസാക്കിയത്

ബിൽ ഇനി രാജ്യസഭയുടെ അനുമതിക്ക് സമർപ്പിക്കും പാവപ്പെട്ടവരുടേയും പിന്നാക്കക്കാരുടെയും അധസ്ഥിത വിഭാഗ ങ്ങളുടെയും ഉന്നമനത്തിന് നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാ ബദ്ധമാണെന്ന് ബിൽ ചർച്ചക്ക് മറുപടി നൽകിയ കേന്ദ്രമന്ത്രി തവർചന്ദ് ഗെലോട്ട് വ്യക്തമാക്കി പട്ടിക ജാതി പട്ടിക വർഗ പീഡന നിരോധന നിയമത്തിലെ വ്യവ സ്ഥകൾ പുനസ്ഥാപിക്കുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ തന്നെ പാസാക്കാനാണ് ഗ്വൺമെന്റ് ഉദ്ദേശിക്കുന്ന തെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിങ്ങ് ലോക്സഭയിൽ വ്യക്തമാ ക്കി മുൻപുണ്ടായിരുന്ന എല്ലാ വൃവസ്ഥകളും അതേപടി നിലനിർത്തി യായിരിക്കും ഭേദഗതി ബിൽ കൊണ്ടുവരികയെന്നും അദ്ദേഹം പറഞ്ഞു നിയമം ദുർബലപ്പെടുത്തില്ലെന്നും ആവശ്യമെങ്കിൽ കൂടു തൽ കർശന വൃവസ്ഥകൾ ഉൾപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി നിർദേശം നൽകിയതായും രാജ്നാഥ് സിങ്ങ് പറഞ്ഞു കേന്ദ്രമന്ത്രിസഭ ബില്ലിന്റെ കരടിന് അംഗീകാരം നൽകിയിട്ടുണ്ട് ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നേരിയ തോതിൽ ഉയരുന്നു

അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ കുറഞ്ഞതോടെ നീരൊഴുക്കും ദൂർബലമായി

മൂലമറ്റും പവർഹൌസിലെ വൈദ്യുതോൽപ്പാദനം വർദ്ധിപ്പിച്ചതും ജലനിരപ്പ് ക്രമീകരിച്ചു നിർത്താൻ കാരണമായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഒന്നരയടിയിൽ താഴെ മാത്രമാണ് വെള്ള ത്തിന്റെ ഉയർച്ചയുണ്ടായത് കൂട്ടനാട്ടിൽ ഇന്നും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ അവധി പ്രഖ്യാപിച്ചു

ചന്ദ്രശേഖരൻ കെ

ശൈലജ എന്നിവർ ഇന്നലെ കുട്ടനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നൽകുന്ന കുടിവെള്ളം പരിശോധിക്കാൻ ഭക്ഷ്യസു രക്ഷാ വകുപ്പിന്റെ മൊബൈൽ ലാബുകളുടെ സേവനം ലഭ്യമാക്കു മെന്ന് കെ

ശൈലജ അറിയിച്ചു

ചന്ദ്രശേഖരൻ അറിയിച്ചു

ബാലൻ നിർദേശം നൽകി അപകടസ്ഥലം നേരിൽ കണ്ട ശേഷം ജില്ലാ ആശുപത്രിയിൽ വിളിച്ച അവലോകന യോഗ ത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി തകർന്ന് കെട്ടിടത്തിന് അനു ബന്ധമായ കെട്ടിടങ്ങൾക്കും ബലക്ഷയം കണ്ടെത്തിയതിനാൽ അവ ഇന്നുതന്നെ നഗരസഭാ എഞ്ചിനിയറിങ്ങ് വിഭാഗം പരിശോധി ക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ബസ്സ്റ്റാന്റ് പരിസരത്തെ കെട്ടിടം തകർന്നതിനെ തുടർന്ന് ഇന്നു മുതൽ പാലക്കാട് മുനിസിപ്പൽ ബസ്റ്റാന്റിലേക്ക് ബസുകൾ പ്രവേശി പ്പിക്കില്ല പകരം സ്റ്റേഡിയം ബസ്സ്റ്റാന്റിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി നഗരസഭ അറിയിച്ചു ൾ കണ്ണൂരിലെ കീഴാറ്റൂർ ദേശീയ പാത ബൈപാസ് നിർമ്മാണ പ്രശ്ന ത്തിൽ ന്യൂഡൽഹിയിൽ ഇന്ന് കേന്ദ്രമന്ത്രി നിധിൻ ഗഡ്ഗരിയുമായി വയൽക്കിളി കൂട്ടായ്മ പ്രതിനിധികൾ ചർച്ച നടത്തും ഇന്നുച്ചയ്ക്ക് ഗതാഗത മന്ത്രാലയത്തിൽ ചേരുന്ന ചർച്ചയിൽ കേന്ദ്ര സഹമന്ത്രി അൽഫോൻസ് കണ്ണന്താനവും ബിജെപി നേതാക്കളും പങ്കെടുക്കും വയൽ പ്രദേശം ഒഴിവാക്കി ബദൽ പാത നിർമ്മിക്കുന്നതിന്റെ സാധു തകൾ സംഘം കേന്ദ്രത്തെ ധരിപ്പിക്കും വയനാട് ബന്ദിപൂർ വനമേഖലയിലെ രാത്രികാല സഞ്ചാര സ്വാതന്ത്രൃം സംരക്ഷിക്കാൻ സുപ്രീം കോടതിയിലെ കേസിൽ മുതിർന്ന അഭിഭാഷകന്റെ സേവനം പ്രയോജനപ്പെടുത്തുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു

ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻ പിള്ളയുടെ നേതൃത്വത്തിൽ എൻഡിഎ സംഘം ഇന്ന് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷം ശ്രീധരൻ പിള്ളയുടെ ആദ്യ പൊതുപരിപാടി യാണിത് രാവിലെ എട്ടിന് കിടങ്ങറയിൽ നിന്ന് യാത്ര തുടങ്ങുന്ന സംഘം മുട്ടാർ പുളിങ്കുന്ന് കാവാലം വെളിയനാട് കൈനകരി പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്ക കെടുതികളും ദുരിതാശ്ചാസ കൃാമ്പു കളും സന്ദർശിക്കും കുട്ടനാടിന്റെ ദുരവസ്ഥക്ക് പരിഹാരം കാണാൻ രാഷ്ട്രീയത്തിനതീതമായ ശ്രമം വേണമെന്ന് ഇന്നലെ ശ്രീധരൻ പിള്ള തിരുവനന്തപുരത്ത് പറഞ്ഞു

ഉച്ചക്ക് ശേഷം നടത്തുന്ന പരീക്ഷ രാവിലെ പ് ഹയർസെക്കന്റി പരീക്ഷ ക്കൊപ്പം നടത്താൻ ഗവൺമെന്റിന്റെ അനുമതി തേടാനും യോഗം തീരുമാനിച്ചു മഴക്കെടുതി മൂലം അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെട്ട ജില്ലകളിൽ രണ്ടാം ശനിയാഴ്ച്ച ഒഴികെ മറ്റ് ശനിയാഴ്ച്ചകൾ പ്രവൃത്തി ദിനമായി ക്രമീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്

വിദ്യാലയങ്ങളുടെ മതേ തര സ്വഭാവം നഷ്ടപ്പെടുത്തുന്ന പരിപാടികൾ സ്കൂളുകളിൽ പാടി ല്ലെന്നും യോഗം നിർദേശിച്ചു ഡിസംബറിൽ ആലപ്പുഴയിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം മാറ്റാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തിരുവനന്തപുരത്ത് അറിയിച്ചു കലോ ത്സവ തീയതിയോ വേദിയോ മാറ്റുന്ന കാരൃത്തിൽ ഒരാലോചനയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ഡിപിഐ വ്യക്തമാക്കി

നാംജിങ്ങിൽ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താര ങ്ങളായ പി

സിന്ധുവും സൈന നെഹ്വാളും സായ് പ്രണീതും കാർട്ടറിൽ കടന്നു ഇന്ത്യയുടെ ഒന്നാം നമ്പർ താരം കെ ശ്രീകാന്ത് പ്രീകാർട്ടറിൽ നിന്നും പുറത്തായി മിക്സഡ് ഡബിൾസിൽ സാത്വിക് സായ് രാജ് അശ്വനി പൊന്നപ്പ സഖ്യം കാർട്ടറിലെത്തി മലപ്പുറത്ത് കേരള പൊലീസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കണ്ണൂർ മലപ്പുറം എംഎസ്പി കെഎപി ഒന്നാം ബറ്റാലിയൻ കെഎപി രണ്ടാം ബറ്റാലിയൻ എന്നീ ടീമുകൾ സെമി ഫൈനലിൽ പ്രവേശി ച്ചു സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും സംസ്ഥാന ഷൂട്ടിങ്ങ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ട് ഇന്ന് ആരംഭി ക്കും

രാവിലെ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി

ദാസൻ ഉദ്ഘാടനം ചെയ്യും അഞ്ചലിൽ മർദ്ദനമേറ്റ് മരിച്ച ബംഗാൾ സ്വദേശി മണിക് റോയി യുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ ധനസഹായം മന്ത്രി ടി

മണിക് റോയിയുടെ ഭാര്യയുടെ ബംഗാ ളിലെ അക്കൌണ്ടിലേക്ക് പണമയച്ചതിന്റെ രേഖ കൊല്ലം ആശ്രാമം ഗസ്റ്ഹൌസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അദ്ദേഹം നൽകി മണിക് റോയിയുടെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ സംസ്ഥാനത്തിന് തന്നെ അപമാനകരമാണെന്ന് മന്ത്രി പറഞ്ഞു പൊതുമേഖലാ ബാങ്കുകളും പുതുതലമുറ ബാങ്കുകളും നൽകുന്ന എല്ലാ സേവനങ്ങളും സഹകരണ ബാങ്കുകളിലൂടെ ലഭ്യ മാക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു കേരള ബാങ്ക് വരുന്നതോടെ ഈ മാറ്റങ്ങൾക്ക് തുടക്കമാവുമെന്നും അദ്ദേഹം പറ ഞ്ഞു തലശ്ശേരി സഹകരണ റൂറൽ ബാങ്കിന്റെ മഞ്ഞോടി ശാഖ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ടൌൺ സ്ക്യറിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെതിരായ പീഡനക്കേസിൽ കൂടുതൽ തെളിവെടുപ്പിനായി അന്വേഷണ സംഘം ഇന്ന് ഡൽഹി യിലേക്ക് പോകും വൈക്കം ഡിവൈഎസ്പി സുഭാഷിന്റെ നേതൃ ത്വത്തിലാണ് ആറംഗ സംഘം ഡൽഹിയിലെത്തുന്നത് മൂന്നാർ സ് പെഷ്യൽ ട്രിബ്യുണലിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു

മൂന്നാർ സെപ്ഷ്യൽ ട്രിബ്യൂണൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിഞ്ഞ മന്ത്രി സഭാ യോഗം തീരുമാനിച്ചിരുന്നു തൃശൂരിലെ പ്രമുഖ സിപിഐഎം നേതാവ് പ്രൊഫ

ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും തൃശൂർ വികസന അതോറിറ്റി ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്

മൃതദേഹം ഇന്നുച്ചക്ക് തൃശൂർ ഗവൺമെന്റ് മെഡി ക്കൽകോളജിന് കൈമാറും കൊച്ചി നഗരസഭാ മുൻ കൌൺസിലറും എഐസിസി അംഗവു മായിരുന്ന എൻ

ലത്തീഫ് നിര്യാതനായി

സമസ്ത്രകേരള സാഹിത്യ പരിഷത്ത് മുൻ സെക്രട്ടറിയും ഖജാൻജിയുമായിരുന്നു സംസ്ക്കാരം ഇന്ന് രാവിലെ മട്ടാഞ്ചേരി യിൽ

കർണാടകയിൽ മാത്രം വിൽക്കാവുന്ന മദ്യമാണ് കറന്തക്കാട് കുട്ലു എന്നിവിടങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തത് ഒരാളെ കസ്റ്റഡിയി ലെടുത്തു ഉരുൾപ്പൊട്ടലിനെ തുടർന്ന് തകർന്ന ഇരിട്ടി വീരാജ്പേട്ട അന്തർ സംസ്ഥാന പാതയിലെ ഗതാഗത നിരോധനം മഴക്കാലം കഴിയും വരെ തുടരും റോഡിന്റെ പുനർനിർമ്മാണത്തിനായി ആറു കോടിയിലേറെ രൂപയുടെ പ്രവൃത്തിയാണ് നടക്കുന്നത്

കാസർകോട് കാറടുക്ക പഞ്ചായത്തിൽ ബിജെപിക്ക് ഭരണം നഷ്ട മായി സിപിഐഎം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ യുഡി എഫ് പിന്തുണച്ചതോടെയാണ് ഭരണസമിതിക്ക് ഭൂരിപക്ഷം നഷ്ടമാ യത്

മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഈ മാസം ആറു വരെ ഓൺലൈ നിൽ പേര് രജിസ്റ്റർ ചെയ്യാം